ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ നാലാംഘട്ട വോട്ടെടുപ്പ് പൂർത്തിയായി

കാസർഗോഡ് മണ്ഡലത്തിലെ പിലാത്തറയിൽ കള്ളവോട്ട് നടന്നുവെന്ന് മുഖ്യതെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ

ഫോനി ചുഴലിക്കാറ്റ് ദേശീയ ക്രൈസിസ്സ് മാനേജ്മെന്റ് സമിതി യോഗം സ്ഥിതിഗതികൾ വിലയിരുത്തി

ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലെ കുൽഗാമിലും ഇന്നായിരുന്നു വോട്ടെടുപ്പ്

കൂടാതെ പശ്ചിമബംഗാളിൽ എട്ടും മധ്യപ്രദേശ് ഒഡീഷ എന്നിവിടങ്ങളിൽ ആറ് വീതം മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്നു ബീഹാറിൽ അഞ്ച് ജാർഖണ്ഡിലെ ്മൂന്ന് മണ്ഡലങ്ങളിലും വോട്ടെടുപ്പ് നടന്നു

അതിനിടെ ഏഴാമത്തെയും അവസാനത്തെയും ഘട്ട വോട്ടെടുപ്പിനുള്ള നാമനിർദ്ദേശപത്രിക സമർപ്പണം പൂർത്തിയായി കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

ജെ പി നേതാവുമായ നരേന്ദ്രമോദി ഝാർഖണ്ഡിലെ കൊഡേർമയിലും പശ്ചിമബംഗാളിലെ ശ്രീറാംപൂരിലും തെരഞ്ഞെടുപ്പ് റാലികളെ അഭിസംബോധന ചെയ്തു

എം കിസാൻ പദ്ധതിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തു പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയെ ശ്രീ

എമാർ കൂറുമാറുമെന്നും ഇവർ ബി

പിയുമായി നിരന്തരം ആശയവിനമയം നടത്തിവരികയാണെന്നും ശ്രീ മോദി അവകാശപ്പെട്ടു കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽഗാന്ധി രാജസ്ഥാനിലെ ദാൽപൂർ ചുരൂ ജയ്പൂർ എന്നിവിടങ്ങളിൽ ഇന്ന് പ്രചാരണം നടത്തി

ജെ പി ദേശീയ അദ്ധ്യക്ഷൻ അമിത് ഷാ ഇന്ന് ഉത്തർപ്പ്ട്ടേഴിലെ ചിത്രകൂട് പ്രതാപ്ഗർ ജോൺപൂർ പ്രയാഗ്ര്മാജ് എന്നിവിടങ്ങളിൽ തിരഞ്ഞെടുപ്പ് പരിപാടികളിൽ പ്പ്കെടുത്തു

രാജസ്ഥാനിലെ ദോൽപ്പൂരിൽ പൊതു യോഗത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസ് ഒരു പുതിയ നിയമം ഉണ്ടാക്കും കർഷകർക്ക് ലോൺ തിരച്ചടവിന് യാതൊരു പ്രയാസവും ഉണ്ടാവില്ലെന്നും അദ്ദേഹം വാഗ്ദാനം നൽകി

ജെ പി നേതാവ് മീനാക്ഷി ലേഖി സമർപ്പിച്ച കോടതിയലക്ഷ്യ ഹർജിയിൽ കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി സുപ്രീംകോടതിയിൽ മറുപടി നൽകി

തനിക്കെതിരായ കോടതിയലക്ഷ്യകേസ് തള്ളണമെന്നും ശ്രീ രാഹുൽ ഗാന്ധി ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിനുമുൻപാകെ ആവശ്യപ്പെട്ടു എന്നാൽ ആവശ്യം തള്ളിയ സുപ്രീംകോടതി വിവാദ പരാമർശം എന്തുകൊണ്ട് കോടതിയലക്ഷ്യമാകുന്നില്ലെന്ന് വിശദീകരിക്കാൻ ശ്രീ

എന്നാൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും സുപ്രീംക്കോടതി രാഹുലിനെ ഒഴിവാക്കിയിട്ടുണ്ട്

ജെ പി അധ്യക്ഷൻ അമിത്ഷാ എന്നിവർ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചെന്ന കോൺഗ്രസ് എം പിയുടെ ഹർജിയിൽ സുപ്രീംകോടതിയിൽ നാളെ വാദം കേൾക്കും

അസമിലെ സിൽചാറിൽ നിന്നുള്ള കോൺഗ്രസ് എം

എസ്

പിലാത്തറ യു

ഇവർക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം നൽകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു ഇതേക്കുറിച്ച് ജില്ലാ കളക്ടർ വിശദമായ അന്വേഷണം നടത്തുമെന്നും മുഖ്യതെരഞ്ഞെടുപ്പ് കമ്മീഷണർ അറിയിച്ചു

റീപോളിംഗിനെക്കുറിച്ച് തീരുമാനിക്കേണ്ടത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്നും ശ്രീ

ഈസ്റ്റ് കടുങ്ങല്ലൂർ സർവ്വീസ് കോ ഓപ്പറേറ്റീവ് ബാങ്ക് ഓഡിറ്റോറിയത്തിലാണ് റീ പോളിങ് നടക്കുക പോൾ ചെയ്തതിനേക്കാൾ കൂടുതൽ വോട്ട് വോട്ടിങ് യന്ത്രത്തിൽ കാണിച്ചതിനെ തുടർന്നാണ് ഈ ബൂത്തിൽ നടന്ന പോളിംഗ് അസാധുവാക്കിയത്

കൂടുതൽ വിവരങ്ങളുമായി രഞ്ജിത്ത്

മറ്റെന്നാൾ വരെ ഫോനി വടക്ക് പടിഞ്ഞാറായി നീങ്ങി പിന്നീട് ക്രമേണ വടക്ക് കിഴക്കോട്ട് ദിശ മാറാനാണ് സ്ലാധ്യത് തെക്കൻ തീരത്തെ സംസ്ഥാനങ്ങളിൽ ഈ ചുഴ്ലിക്കാറ്റിന്റെ പ്രഭാവം കാലാവസ്ഥാ നിരീക്ഷണവകുപ്പ് സസൂക്ഷ്മം നിരീക്ഷിച്ച് വരികയാണ് സംസ്ഥാന ഗവൺമൈന്റുകളെ ഏകോപിപ്പിച്ച്കൊണ്ട്കേന്ദ്ര ദുരന്ത നിവാരണസേനയും ഇന്ത്യൻ കോസ്റ്റ്ഗാർഡും അതീവ ജാഗ്രതയിലാണ് നാളെയും സമിതിയോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തും ഫോനി ചുഴലിക്കാറ്റിനെ തുടർന്ന് ഉളവാകുന്ന ഏത് സ്ഥിതിഗതിയും നേരിടുന്നതിന് തങ്ങൾ പൂർണ്ണമായും മുന്നോരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞെന്ന് ദേശീയ ക്രൈസിസ്സ് മാനേജ്മെന്റ് സമിതി ബന്ധപ്പെട്ട സംസ്ഥാനങ്ങളിലെ ഉദ്യോഗസ്ഥർക്ക് ഉറപ്പ് നൽകി മത്സ്യതൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് സംസ്ഥാന ഗവൺമെന്റുകൾ മതിയായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്

സംസ്ഥാന ഗവൺമെന്റുകളുടെആവശ്യപ്രകാരം സംസ്ഥാന ദുരന്ത നിവാരണ നിധിയിൽ നിന്നുള്ള ആദ്യഗഡു മുൻകൂറായി അനുവദിക്കുമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് ഉറപ്പ് നൽകി തമിഴ് നാട് ആന്ധ്രാപ്രദേശ് ഒഡിഷ പശ്ചിമബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെ ചീഫ്സെക്രട്ടറിമാർ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർ തുടങ്ങിയവർ വീഡിയോ കോൺഫറൻസിംഗിലൂടെ യോഗത്തിൽ പങ്കെടുത്തു

സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനായി രാജ്യരക്ഷാമന്ത്രി നിർമ്മല സീതാരാമൻ ഇന്നലെ കിർഗിസ്ഥനിൽ എത്തി